തിലോത്തമൻ

ഏഴ് പേർക്ക് സമ്പർക്കം മൂലമാണ് രോഗം ബാധിച്ചത്

പാലക്കാട് സ്വദേശി മീനാക്ഷിയമ്മാൾ കൊല്ലം സ്വദേശി സേവ്യർ മലപ്പുറം സ്വദേശി ഷബ്നാസ് എന്നിവരാണ് ഇന്ന് മരണമടഞ്ഞത് ആരാധനാലയങ്ങൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം മാർഗ്ഗു നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നതിന് സംസ്ഥാന സർക്കാർ കാത്തിരിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആര്മാധനാലയങ്ങൾ തുറക്കുന്നത് സംബന്ധിച്ച് മതമേധാവികളുമായി ഇന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ക്ടർച്ചു നടത്തിയതായും മുഖ്യമന്ത്രി അറിയിച്ചു വിശ്വാസ്തീകളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്ന നടപടി സ്വീകരിക്കണ്ട്മുന്ന് യോഗത്തിൽ പൊതു അഭിപ്രായം ഉയർന്നു പ്രായമായവർ ് മറ്റ് രോഗമുള്ളവർ തുടങ്ങി റിവേഴ്സ് കാറന്റൈനിൽ കഴിയുന്നവർക്ക് പ്രത്യേക നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും അഭിപ്രായമുണ്ടാതായി മുഖ്യമന്ത്രി അറിയിച്ചു

സംഭവത്തിൽ വർഗ്ഗീയത കലർത്തുന്നതായും വലിയതോതിൽ കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നതായും മുഖ്യമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു സംഭവത്തിൽ അന്വേഷണം നടന്നു വരുന്നതായും മൂന്നു പേരെ സംശയിക്കുന്നതായും മുഖ്യമന്ത്രി വൃക്തമാക്കി

സംഭവത്തിന്റെ മറവിൽ കേരളത്തിനും മലപ്പുറം ജില്ലക്കുമെതിരെ നടത്തിയ വിദ്ധേഷ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മനേക ഗാന്ധിക്ക് കത്ത് നൽകി

കാരണക്കാരായവർക്ക് എതിരെ ശക്തമായ നടപടി സ്പീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇത്തരത്തിൽ ആണ്ടിൽ കൊലപ്പെടുത്തുന്നത് ഇന്ത്യൻ സംസ്കാരത്തിന് യോജിച്ചതല്ലെന്നും ശ്രീ പ്രകാശ് ജാവദേക്കർ പറഞ്ഞു

ഓൺലൈൻ ക്സാസുകൾ നിർത്തി വയ്ക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ സ്വകാര്യ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി കേസ് ബുധനാഴ്ച് വീണ്ടും പരിഗണിക്കും

തിലോത്തമൻ കോവിഡിനുശേഷം കാലവർഷം തുടങ്ങുന്ന സാഹചര്യത്തിൽ ഭക്ഷ്യധാന്യക്ഷാമം ഉണ്ടാകാതിരിക്കാൻ ആറുമാസത്തേക്ക് കരുതൽ ധാന്യശേഖരം ഉറപ്പുവരുത്തിയതായി ഭക്ഷ്യ മന്ത്രി പി

പയറുവർഗ്ഗങ്ങൾ ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾക്കും വിലക്കയറ്റം ഉണ്ടാകാതെ ഇരിക്കാൻ കരുതൽ ശേഖരം ഉറപ്പുവരുത്തിയിട്ടുണ്ട് കോവിഡ് കാലത്ത് തുടർച്ചയായി സ്പ്ലൈകോ വിൽപ്പനശാലകൾ പ്രവർത്തിപ്പിച്ചും സമൂഹ അടുക്കളകൾക്കായി ഭക്ഷ്യ വസ്തുക്കൾ വിതരണം ചെയ്തും അതിജീവനക്കിറ്റുകൾ ജനങ്ങളിൽ എത്തിച്ചും സൌജന്യ റേഷൻ വിതരണം ചെയ്തും ദുരിതബാധിതർക്ക് കൈത്താങ്ങാകാൻ വകുപ്പിന് സാധിച്ചതായും മന്ത്രി വാർത്താസ്ക്മേളനത്തിൽ പറഞ്ഞു

വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലി മുത്ത്

ഇവയിൽ ഏഴ് വിമാനങ്ങൾ കേരളത്തിലേക്കാണ് സർവ്വീസ് നടത്തുന്നത് ദുബായി അബുദാബി കുവൈറ്റ് ഖത്തർ ഒമാൻ എന്നിവിടങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ഇന്ന് സർവ്വീസുകളുണ്ട് അമർ ഫെറ്റിൽ ഇൻട്രോ കേരളത്തിൽ പോസിറ്റീവ് കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി പാലിക്കേണ്ടതാണെന്ന് സംസ്ഥാന കൊറോണ കൺട്രോൾ സെൽ നോഡൽ ഓഫീസർ ഡോ അമർ ഫെറ്റിൽ ആകാശവാണിയോട് പറഞ്ഞു

അപകടങ്ങളിൽ മരണമടഞ്ഞ തൃശൂർ ചാവക്കാട് സ്വദേശി എ

ആസിഫ് തൃശൂർ പെരിങ്ങോട്ടുക്കര സ്വദേശിനി ഡോണ എന്നിവരുടെ കുടുംബങ്ങൾക്കാണ് തുക ലഭിച്ചത് കേന്ദ്ര സർക്കാരിന്റെ പ്രധാൻമന്ത്രി ഗരീബ് കല്യാൺ പാക്കേജിന്റെ ഭാഗമായാണ് ഇൻഷുറൻസ് തുക ലഭിച്ചത്

കോഴിക്കോട് ജില്ലയിലെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി രോഗം ബാധിച്ചവരെയോ നിരീക്ഷണത്തിൽ കഴിയുന്നവരെയോ ഒറ്റപ്പെടുത്തുന്ന സമീപനം ഉണ്ടാവാതിരിക്കാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ജാഗ്രത പുലർത്തണം

ജാഗ്രതയോടെ കൈകാരൃം ചെയ്താൽ മാത്രമേ സമ്പർക്കം കുറയ്ക്കാനും രോഗവ്യാപനം തടയാനും കഴിയൂ എന്നും മന്ത്രി പറഞ്ഞു

അയൽക്കാർനായ യുവാവ് മോഷണ ശ്രമത്തിനിടെയാണ് കൊല്പാതകം നടത്തിയതെന്ന് കോട്ടയം എസ് പി അറിയിച്ചു വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ടോം മാത്യു

കുരീപ്പുഴ സ്വദേശി ്ജോസാണ് മരിച്ചത്

മദ്യപിക്കുന്നതിനിടെ ഇരുവരും തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്

ശശിധരൻ

കഴിഞ്ഞ ദിവസം ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ച എയർലൈൻസ് ഉദ്യോഗസ്ഥയെ പറ്റി അപകീർത്തികരമായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പ്രതികരണം വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നവർക്കെതിരെയും നടപടി സ്വീകരിക്കും വൈദികൻ തിരുവനന്തപുരം നാലാഞ്ചിറയിൽ കോവിഡ് ബാധിച്ച് മരിച്ച വൈദികന്റെ മൃതദേഹം മൂന്ന് ദിവസത്തെ അനിശ്ചിതാവസ്ഥയ്ക്ക് ശേഷം സംസ്കരിച്ചു നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് സംസ്കാര ചടങ്ങുകൾ ഇന്നലെ മുടങ്ങിയിരുന്നു ഇന്നലെ സംസ്കാരം നടത്താൻ നിശ്ചയിച്ചിരുന്ന സെമിത്തേരിക്ക് സമീപമുള്ള മറ്റൊരു സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് ഇന്നും നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായി

ക്ടെക്ട് മഴക്കാലമെത്തിയതിനാൽ പല ർസ്ഥലത്ത് നിന്നും ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്

പത്ത് വർഷത്തേക്കാണ് വിലക്ക് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഇവരെ കരിമ്പട്ടികയിൽ പെടുത്തുകയും വിസ റദ്ദാക്കുകയും ചെയ്തിരുന്നു

ഓസ്ട്രേലിയയുമായുള്ള ബന്ധം വിപുലപ്പെടുത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് ശ്രീ

ഇത് ഇന്തോ പെസഫിക് മേഖലയേയും ലോകരാജൃങ്ങളേയും സംബന്ധിച്ചിടത്തോളം നിർണ്ണായകമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സാങ്കേതിക രംഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി നേതൃസ്ഥാനം വഹിക്കുന്നതായി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട് മോറിസൺ ഉച്ചകോടിയിൽ പറഞ്ഞു

രോഗികളുടെ എണ്ണത്തിൽ അഭ്യമിക്കയ്ക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്തുള്ള ബ്രസീലിൽ രോഗ്ല്ബ്മാധിതരുടെ എണ്ണം ആറ് ലക്ഷത്തോടടുക്കുന്നു

സ്വർണ്ണവിലയിൽ കുറവ്

മഴ സംസ്ഥാനത്തും വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും

കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ പോകരുതെന്നും കടലിൽ മുന്നറിയിപ്പുണ്ട്